ച്ചില്ലെങ്കിൽ പാക്കിസ്ഥാന്റെ തകർച്ച ആർക്കും തട യാനാവില്ലെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സംസ്ഥാന ടൂറിസം മന്ത്രിമാരുടെ സമ്മേളനം നാളെ കോവളത്ത് മരടിലെ അനധികൃത ഫ്ളാറ്റുകളിൽ കഴിയുന്നവർക്ക് താമസം മാറ്റാൻ ഇന്ന് വൈകിട്ടുവരെ സമയപരിധി അനുവദിച്ചു

ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന്

നിയന്ത്രണരേഖ ലംഘിക്കരുതെന്ന് പാക്കിസ്ഥാൻ അവരുടെ ആളുകൾക്ക് നിർദ്ദേശം നൽകിയില്ലെങ്കിൽ ആരും മടങ്ങിപ്പോ കില്ലെന്ന് അദ്ദേഹം സൂറത്തിൽ മുന്നറിയിപ്പ് നൽകി

നമാമിദേവി നർമ്മദാ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി അവിടെ പ്രാർത്ഥനയിലും സംബന്ധിക്കുമെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാണി അഹമ്മദാബാദിൽ അറിയിച്ചു സർദാർ സരോവർ ഡാം പരമാവധി സംഭരണ ശേഷിയിലെത്തുന്നതിന്റെ ഭാഗ മായാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന ടൂറിസം മന്ത്രിമാരുടെ സമ്മേളനം നാളെ കോവളത്ത് ചേരും

ഇന്ത്യയെ ലോകത്തെ മികച്ച വിനോദ സഞ്ചാര കേന്ദ്രമാക്കാനും വെല്ലുവിളികളും പ്രശ്നങ്ങളും അതിജീവിച്ച് വിനോദസഞ്ചാരത്തിലൂടെ പുതിയ വരുമാനമാർഗ്ഗങ്ങൾ കണ്ടെത്താനും ലക്ഷ്യമിട്ടാണ് യോഗം മരടിലെ അനധികൃത ഫ്ളാറ്റുകളിൽ കഴിയുന്നവർക്ക് താമസം മാറ്റാൻ ഇന്ന് വൈകിട്ടുവരെ സ്യമയപരിധി നീട്ടി നൽകി ഇന്നലെ വൈകിട്ടുവരെയായിരുന്നു ഫ്ളാറ്റുകൾ ഒഴി യാൻ നോട്ടീസിൽ സമയം നൽകിയിരുന്നത് ഇന്നലെ സി

എമ്മും കോൺഗ്രസ്സും ബി ജെ പിയും ഉൾപ്പെടെ രാഷ്ട്രീയപാർട്ടികൾ ഫ്ളാറ്റിലെ താമസക്കാർക്ക് അനുകൂല മായി രംഗത്തെത്തിയിരുന്നു ഒഴിപ്പിക്കലിനെതിരെ നാളെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഫ്ളാറ്റ് ഉടമകളുടെ തീരു മാനം മരട് ഫ്ളാറ്റ് പ്രശ്നത്തിൽ മുഖ്യമന്ത്രി സർവ്വകക്ഷി യോഗം വിളിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു ഫ്ളാറ്റുകളിലെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണം ഇക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിൽക്കണമെന്നും ശ്രീധ രൻപിള്ള ആവശ്യമുന്നയിച്ചു കേരളത്തിന്റെ റെയിൽവേ വികസനം ചർച്ച ചെയ്യാൻ അടുത്ത ബുധനാഴ്ച തിരുവനന്തപുരത്ത് യോഗം ചേരും

പിമാർക്ക് യോഗത്തിലേക്ക് ക്ഷണം കിട്ടി യിട്ടുണ്ട് ട്രെയിനുകളുടെ നിരന്തരമായ വൈകി ഓട്ടവും പുതിയ ട്രെയിനുകളുടെ അപര്യാപ്തതയും പുതിയ റെയിൽപ്പാതകളുടെ അനിവാര്യതയും ഉൾപ്പെടെ വിഷയ ങ്ങൾ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടേക്കും കാർഷിക മേഖലയെ തകർച്ചയിൽനിന്നും കരക്യറ്റാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം അനിവാർ്യമാണെന്ന് മന്ത്രി കെ

പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗവൺമെന്റ് ഓണാഘോഷം ജനകീയമാക്കിയെന്നും ഓണത്തോടനുബന്ധിച്ച് വേർതിരിവില്ലാതെ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചതായും മന്ത്രി വ്യക്തമാക്കി മോട്ടോർവാഹന നിയമ ഭേദഗതി പ്രകാരം കേന്ദ്രത്തിന്റെ അന്തിമ തീരുമാനം വരുന്നതുവരെ ഈടാക്കേണ്ട പിഴത്തുക തീരുമാനിക്കാൻ നാളെ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തുമെന്ന് മന്ത്രി എ

ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ചെയ്യാനാകുന്ന നട പടികളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്

നാലു ലക്ഷം രൂപ വീതമാണ് ആശ്രിതർക്ക് നൽകുന്നത് ബാങ്ക് അക്കൌ ണ്ടിലേക്ക് പണം കൈമാറാനാണ് തീരുമാനം തുടർച്ചയായ അവധി ദിനങ്ങളെത്തുടർന്നാണ് സഹായധനം വൈകിയത്

പാലാ നിയമസഭാ ഉപതിരഞ്ഞെട്ടുപ്പിന്റെ പ്രചാരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മൂന്ന് മുന്നണികളു ടെയും പ്രചാരണത്തിന്റെ ചുക്കാൻ മുതിർന്ന നേതാക്കൾ ഏറ്റെടുക്കുന്നു

ഡി

ഐ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയും പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മണ്ഡലത്തിലുണ്ടാ വും

ജോസഫ് വിഭാഗം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ പങ്കെടുക്കു മെന്ന് ഉറപ്പ് ലഭിച്ചതായി മുന്നണി നേതൃത്വം അറിയിച്ചു ഇന്നലെ ഭരണങ്ങാനത്ത് ചേർന്ന യു ഡി എഫ് യോഗത്തിൽ പി

ജോസഫ് തന്നെ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയതായി അവർ പറഞ്ഞു

എഫ് സ്ഥാനാർത്ഥി മാണി

കാപ്പനുവേണ്ടി മന്ത്രിമാരടങ്ങുന്ന സംഘം പാലായിൽ കൃാമ്പ് ചെയ്ത് വീടു കൾ കയറി പ്രചരണം നടത്തുന്നു

എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നേതൃത്വം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻ പിള്ളയും ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ പി

കൃഷ്ണദാസ് കെ സുരേന്ദ്രൻ എന്നിവരും അടങ്ങിയ സംഘത്തിനാണ്

ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം ഇന്ന് ഭരണങ്ങാനം പഞ്ചായത്തിൽ പരൃടനം നടത്തും

ഡി എഫ് സ്ഥാനാർത്ഥി മാണി

കാപ്പൻ ഇന്ന് ഭരണങ്ങാനം മേലുകാവ് കടനാട് പഞ്ചായത്തുകളിൽ പ്രചരണം നടത്തും രാമപുരം കരൂർ ഭരണങ്ങാനം തലപ്പലം പഞ്ചായത്തുകളി ലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ പര്യടനം

വൈകിട്ട് ഏഴിന് മത്സരം തുടങ്ങും

സംസ്ഥാന ബോക്സിംഗ് ചാമ്പൃൻഷിപ്പിൽ വയനാട് ജില്ലയ്ക്ക് ഏഴ് മെഡലുകൾ ലഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന പുരുഷ വനിതാ ബോക്സിംഗ് ചാമ്പൃൻഷിപ്പിൽ ഏഴ് മെഡലുകളുമാ യാണ് അവർ ദേശീയ മത്സരത്തിന് അർഹ്ത നേടിയത് ആറൻമുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന്

ഉച്ചയ്ക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മന്ത്രി കെ രാജു കവി രമേ ശൻ നായർക്ക് രാമപുരത്ത് വാര്യർ അവാർഡ് സമ്മാനി ക്കും കോഴിക്കോട്ട് സംസ്ഥാന ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് മത്സരം ഇന്ന് സമാപിക്കും

മലബാർ ജലോത്സവം ഇന്ന് കോഴിക്കോട് കോരപ്പുഴ യിലെ കുനിയിൽകടവിൽ നടക്കും ഇതിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെ അഭ്യാസ പ്രകടനവും നടക്കും രണ്ടുമ ണിക്ക് വള്ളംകളി മത്സരം ആരംഭിക്കും വിജയികൾക്ക് കൃാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി എ

സിയുടെ സഹകരണത്തോടെയാണ് ജലോത്സവം വനിതാ ഫുട്ബോൾ താരം ആര്യശ്രീയ്ക്ക് സ്പോർട്സ് വകുപ്പ് വീട് നിർമ്മിച്ച് നൽകുമെന്ന് മന്ത്രി ഇ

കാസർകോട് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായ ത്തിൽ വിവിധ പദ്ധതികളും അനുമോദന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് മനു ഷ്യപ്പൂലികൾ നഗരവീഥികളിൽ നിറഞ്ഞാടി

രാത്രി എട്ടുമണിയോടെ പുലിക്കളി സമാപിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ബോഡിമെ ട്ടിനും പൂപ്പാറയ്ക്കുമിടയിൽ ഇന്നലെ വൈകിട്ടോടെ ഉരുൾപൊട്ടി പൂപ്പാറയിൽനിന്നും ഏഴ് കിലോമീറ്റർ അകലെ തോണ്ടിമലക്ക് സമീപം ചൂണ്ടൽ ഭാഗത്താണ് ഉരുൾ പൊട്ടി യത്

ദുരന്ത നിവാരണ സേന പൊലീസ് ഫയർഫോഴ്സ് വിഭാഗങ്ങൾ റോഡിൽനിന്നും മണ്ണൂമാറ്റി വരികയാണ്

കാലാവസ്ഥാ വൃതിയാനംമൂലം കരിമ്പിന്റെ വിളവ് ഗണ്യമായി കുറഞ്ഞതാണ് മറയൂർ ശർക്കര കുറയു ന്നതിന് പ്രധാന കാരണം

ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിൻ ഇന്നലെ കൊച്ചുവേളിയ്ക്കും കൊല്ലത്തിനുമിടയിൽ മൂന്നുതവണ വേർപെട്ടു കൊച്ചുവേളിയിൽനിന്ന് ശ്രീഗൃഹാ നഗറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ എഞ്ചിൻ ആദ്യം ചിറ യിൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വേർപെട്ടത് തക രാർ പരിഹരിച്ച് യാത്ര തുടർന്ന ട്രെയിനിന്റെ എഞ്ചിൻ പിന്നീട് പരവൂരും മയ്യനാടും വീണ്ടും വേർപെടുകയായിരുന്നു മാനന്തവാടി തവിഞ്ഞാൽ വാളാട് പ്രദേശങ്ങളിൽ നിന്ന് വാറ്റുചാരായ വിൽപ്പന നടത്തിയ മൂന്നുപേരെ എക്സൈസ് പിടികൂടി

വാളാട് സ്വദേശികളായ സതീഷ് രാജൻ ബാല ചന്ദ്രൻ എന്നിവരാണ് വാറ്റ് ചാരയ വിൽപ്പന നടത്തിയത്

ജെ പിയുടെ സേവാ സപ്താഹ് കോഴിക്കോട് ജില്ലാ തല ഉദ്ഘാടനം മാധ്യമപ്രവർത്തകൻ ഹരീഷ്

കണ്ണൂർ ജില്ലയിൽ സ്പെഷ്യൽ സ്കാഡ് മൂന്ന് കാറിക

ളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു

കേരള സംഗീത നാടക അക്കാദമിയും മാവേലിക്കര നരേ ന്ദ്രപ്രസാദ് സ്മാരക നാടക പഠന ഗ്ഗവേഷണ കേന്ദ്രവും ചേർന്ന് നടത്തുന്ന ദേശീയ സംഗീതോത്സവം ഇന്ന് തുട ങ്ങും വൈകിട്ട് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും